ഓം ബിർള എൻ

സ്പീക്കർ സ്ഥാനാർത്ഥി

സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു

വി

ഒഡീഷ പുതുച്ചേരി രാജസ്ഥാൻ സിക്കിം പഞ്ചാബ് തമിഴ്നാട് തെലുങ്കാന ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും വിശദാംശങ്ങളുമായി രഞ്ജിത്ത്

പി ഓം ബിർള എൻ ഡി

രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാംഗമായ ശ്രീ ബിർള തുടർച്ചയായ രണ്ടാം തവണയാണ് എം പിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി എന്നിവർ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രൾഹാദ് ജോഷി അറിയിച്ചു ബിജെഡി ശിവസേന അകാലിദൾ എൽ

പി വൈ എസ് ആർ കോൺഗ്രസ് ജെ

യു അണ്ണാ ഡി എം കെ എന്നീ പാർട്ടികൾ പിന്തുണച്ചതായും അദ്ദേഹം വ്യക്തമാക്കി

എ അദ്ധ്യക്ഷ സോണിയഗാന്ധി മുലായംസിംഗ് യാദവ് മേനകാഗാന്ധി ടി

ബാലു എ

ശ്രീമതി സോണിയാഗാന്ധി ഹിന്ദിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള എല്ലൂ എം

പ്രോട്ടേം സ്പീക്കർ ഡോ

എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ശ്രീ ബിർളയെ പിന്തുണയ്ക്കുന്നതിന് ബിജെഡിയും പിന്തുണ നല്കുകയാണെന്ന് പാർട്ടി നേതാവ് പിനാകി മിശ്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്രഗവണ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബിജെഡിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ജെ പി വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ ജെ പി നദ്ദയ്ക്ക് പാർലമെന്റിനു പുറത്ത് എം

ആഭ്യത്ത്ര്മിന്തി അമിത്ഷായും മറ്റ് മുതിർന്ന നേതാക്കളും സംബന്ധിച്ചു

എൽ

ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തു നടന്ന ചടങ്ങിൽ നേതാക്കളായ കൈലാഷ് വിജയ്വർഗ്ഗിയ മുകുൾ റോയ് എന്നിവർ പങ്കെടുത്തു

അവധിക്കാല ജഡ്ജിമാരായ ജസ്റ്റിസ് ദീപക് ഗുപ്താ സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബഞ്ചാണ് നാളെ കേസ് പരിഗണിക്കുന്നത്

സ്ഫോടനത്തിന് ഉപയോഗിച്ചത് ഇന്ന് കൊല്ലപ്പെട്ട ഭീകരൻ മഖ്ബൂൽ ഭട്ടിന്റെ ഉടമസ്ഥതയിലുളള വാഹനമാണെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്നത്തെ സൈനിക നടപടിക്കിടയിൽ ഒരു സേനാംഗം വീരമൃത്യു വരിക്കുകയും മൂന്ന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു

സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പാക്കുന്ന എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി വ്യാഴാഴ്ച ആരംഭിക്കും ഗ്രാമീണ മേഖലയിൽ വികസനം എത്തിക്കാനായി ഗവണ്മെന്റ് ജീവനക്കാരും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് ഇതിലൂടെ നല്കുന്നത്

ഓരോ പഞ്ചായത്തിന്റെയും ചുമതല ഗസറ്റഡ് തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും കുറഞ്ഞത് രണ്ടു ദിവസമെങ്കിലും ഗ്രാമങ്ങളിൽ താമസിച്ച് ഇവർ ജനങ്ങളുമായി സംവദിക്കും

റാം മനോഹർ ലോഹ്യ ആഹ്വാനം ചെയ്തത്

തലസ്ഥാനമായ പനാജിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ദ് വിപ്ലവസേനാനികൾക്ക് ആദരാജ്ഞലികൾ അർപ്പിച്ചു

പ്രിൻസിപ്പൽ കമ്മീഷണർ അഡീഷണൽ കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോടാണ് നിർബന്ധിതമായി വിരമിക്കാൻ ഉത്തരവിട്ടത് നിലവിലെ മൂന്നു മാസത്തെ വേതനത്തിന് തുല്യമായ ഇവർക്ക് നല്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു

നൃത്ത അധിഷ്ഠിത പരിപാടികളിൽ കുട്ടികൾക്ക് ചേരാത്ത രീതിയിലുള്ള അവതരണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ഇത്തരം പ്രവൃത്തികൾ ചെറു പ്രായത്തിലും കുട്ടികളെ സ്വാധീനിക്കുമെന്നും ദൂഷ്യഫലങ്ങളുണ്ടാക്കുമെന്നും മ ന്ത്രാലയം നിരീക്ഷിച്ചു കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് റെഗുലേഷൻ ആക്റ്റ് നിർദ്ദേശിച്ച പ്രോഗ്രാം പരസ്യകോഡുകളിലെ വ്യവസ്ഥകളും ചട്ടങ്ങളും എല്ലാ സ്വകാര്യ ഉപഗ്രഹ ടെലിവിഷൻ ചാനലുകളും പാ ലിക്കണമെന്നും മന്ത്രാലയം നിർദേശിച്ചു

എന്നാൽ രാജ്യത്ത് ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സാക്ഷരരും നൈപുണ്യം സ്വായത്തമാക്കിയ നിരവധി തൊഴിൽ രഹിതരും ഉണ്ട്

അത്യേസമയം ് സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച നല്കാതെട് ക്ഡ്രൈവർമാരുടെ പരിശീലനത്തിലും നൈപുണ്യ പരിശോധിയ്ക്കുമുള്ള ഊന്നൽ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

ചെന്നൈ നഗരത്തിന് പുറത്തായി സ്ഥിതിചെയ്യുന്ന ഒരു വൃവസായിക പ്രദേശമാണ് ആവടി

അഫ്ഗാനിസ്ഥാന് ഇതുവരെ ഒരു വിജയം പോലും നേടാനായിട്ടില്ല

വായു കൊടുങ്കാറ്റ് ശക്തി കുറഞ്ഞതോടെ ഗുജറാത്തിന്റെ പല സ്ഥലങ്ങളിലും നല്ല മഴ ലഭിച്ചിരുന്നു